പ്രളയക്കെടുതി ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം

പ്രളയദുരിതം ക്രേളത്തിൽ കരിചന്തയും പൂഴ്ത്തിവയ്പ്പും നടത്തുന്നവർക്കെതിരെ കർശന നടപടി

ഇന്ത്യയുടെ മെഡൽ നേട്ടം ഏഴായി

തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്ചാസം പുനരധിവാസം പുനർനിർമാണം എന്നിവ പ്രത്യേക നിയമസഭായോഗം ചർച്ച ചെയ്യും പ്രളയത്തിന് ശേഷം പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനം ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾക്ക് ജിഎസ്ടിയ്ക്കു പുറമേ പത്ത് ശതമാനം സെസ് ഏർപ്പെടുത്താൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു സംസ്ഥാന ജിഎസ്ടിയിലായിരിക്കും പത്ത് ശതമാനം സെസ് ഏർപ്പെടുത്തുക പുനരധിവാസത്തിന് ഓരോ വകുപ്പും പ്രത്യേക കർമ പദ്ധതികൾ തയാറാക്കും

ദീർഘകാല പദ്ധതികൾക്ക് നബാർഡിന്റെ സഹായം തേടും

ഇക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും തീവ്രതയും വ്യാപ്തിയും പരിഗണിച്ച് ഗുരുതരസ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

കേരളത്തിലെ പ്രളയബാധിതരെ അകമഴിഞ്ഞ് സഹായിക്കാൻ എം പിമാരോട് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആഹ്വാനം ചെയ്തു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ നികുതി ഒഴിവാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു

കേന്ദ്രം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ട്വീറ്റ് ചെയ്തു കേരളത്തിലേക്കുള്ള വിമാനയാത്രചിലവുകൾ നിരീക്ഷിക്കുന്നതായി വ്യോമയാനമന്ത്രി സുരേഷ് പ്രഭു അറിയിച്ചു കുടിവെള്ളം ഇന്ധനം തുടങ്ങി നിരവധി അവശ്യവസ്തുക്കൾ രാജ്യത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും കൊച്ചിയിൽ എത്തുന്നുണ്ട് കര നാവികസേനയും കേന്ദ്ര ദുരന്ത നിവാരണസേനയും രക്ഷാപ്രവർത്തനം തുടരും സ്ഥിതിഗതികൾ പൂർവസ്ഥിതിയിൽ ആകുന്നതുവരെ രക്ഷാപ്രവർത്തനം നിർത്തിവയ്ക്കില്ലെന്നും കേന്ദ്ര സേന വൃക്തമാക്കി കേരള ഗവൺമെന്റുമായി സഹകരിച്ച് സേനയുടെ മെഡിക്കൽ ടീം പ്രവർത്തിക്കുമെന്ന് ആർമി സതേൺ കമാന്റ് മേധാവി ലഫ് ജനറൽ ഡി ആർ സോണി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന അലേർട്ടുകൾ എല്ലാം പിൻവലിച്ചതായും ഇന്നലെ നേരിയ തോതിലുള്ള മഴയാണ് സംസ്ഥാന നേരിട്ടതെന്നും കാലാവസ്ഥ വകുപ്പ് ഡയറക്ടർ കെ സന്തോഷ് അറിയിച്ചു

എന്നാൽ സുരക്ഷിതമായ സ്ഥിതിയെത്തുന്നത് വരെ രക്ഷാപ്രവർത്തനം തുടരാനാ ണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം വെള്ളമിറങ്ങുന്ന മേഖകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം നൽകുക

വിവിധ വിഭാഗങ്ങൾ ഏകോപിപ്പിച്ചായിരിക്കും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക

പിവിധ മെഡിക്കൽ ക്യാമ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും പകർച്ചവ്യാധികൾ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് സ്റ്റേറ്റ് കൺട്രോൾ റൂം തുറന്നത്

പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് ഒരു വർഷം വരെ തടവും പിഴയും ലഭിക്കും

കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ശ്രദ്ധയിൽപെട്ട സാഹചരൃത്തിൽ വൃാപാരികളുടെയും ലോറി ഉടമകളുടെയും സംഘടനാ പ്രതിനിധികൾ സൂപ്പർ മാർക്കറ്റുകളുടെയും ഇന്ധന കമ്പനികളുടെയും പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി ചർച്ച നടത്തി പൂഴ്ത്തിവെപ്പ് തടയു ന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ ഇന്നലെ നടത്തിയ വ്യാപക റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും

ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകമായി റിലീഫ് ഫണ്ട് ഈ ഘട്ടത്തിൽ പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നേരിട്ട് തുക നൽകണം

കേന്ദ്ര സേനയും ദുരന്ത നിവാരണ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്

മല ഇടിച്ചിലിൽ നിരവധി പേർ ഉൾപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്

എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മിക്കായേൻ പോംപ്യോ പ്രതിര്യോദ്ധ് ്സെക്രട്ടറി ജയിംസ് മാറ്റിസ് എന്നിവർ അടുത്തമാസം ആറാം ത്രീയ്തി ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡ്രെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ആലിസ് വെൽസ് പറഞ്ഞു

ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഇതേയിനത്തിൽ അഭിഷേക് വർമ്മ വെങ്കലവും നേടി ഇതോടെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഏഴായി